സമ്മേളനം ഇന്ന് സമാപി ക്കും

ഗവേഷകർക്ക് വേണ്ടി തയാറാക്കിയ സഹായക പോർട്ടൽ ഐസ്റ്റെം ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും

ശാസ്ത്ര കോൺഗ്രസിന്റെ ചരി ത്രത്തിലാദൃമായി കർഷക സയൻസ് കോൺഗ്രസും ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാലശാസ്ത്ര കോൺഗ്രസ് വനിതാ ശാസ്ത്ര കോൺഗ്രസ് എന്നിവ യ്ക്കൊപ്പം പ്രൈഡ് ഓഫ് ഇന്ത്യ ഐ

സി എക്സ്പോ മെഗാ ശാസ്ത്ര പ്രദർശനവും ഉണ്ടായിരി ക്കും

തുംകൂരിൽ ദേശീയ കർഷക അവാർഡ് ദാന ചടങ്ങിലാണ് പദ്ധതിയുടെ മൂന്നാംഘട്ട തുക അനു വദിച്ചത് കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും മീൻപിടുത്തക്കാർക്ക് ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടു കളും ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു പുതുതായി ആരംഭിച്ച അഞ്ച് ഡി

ഡി ഒ യുവ ശാസ്ത്രജ്ഞ ലാബുകളും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു പൌരത്വ നിയമ ഭേദഗതിയെ കുറിച്ചും ദേശീയ പൌരത്വ രജി സ്റ്ററിനെ കുറിച്ചും ജനങ്ങളെ ബോധവത്കരിക്കുന്ന ദേശീയ പ്രചാരണ പരിപാടിക്ക് രാജസ്ഥാനിലെ ജോധ്പൂ രിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും നിയ മത്തെ അനുകൂലിച്ച് സംഘടിപ്പിക്കുന്ന പൊതുറാലിയിലും അദ്ദേഹം പങ്കെടുക്കും ജോധ്പൂരിലാണ് ഏറ്റവും അധികം പാക്കിസ്ഥാൻ അഭയാർത്ഥികൾ പൌരത്വം കാത്തിരിക്കുന്നത് ലോക കേരള സഭയ്ക്ക് നിയമപരമായ ആധികാരികത നൽകു ന്നതിന് ലോക കേരള സഭ കരട് ബിൽ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു കരട് ബില്ലിൽ ചർച്ചകൾ നടത്തി ആവ ശ്യമായ ഭേദഗതികളോടെ സഭാ സമ്മേളനത്തിൽ ഇതിന് അംഗീകാരം നൽകുമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃ ഷ്ണൻ അറിയിച്ചു

ആസാദ് മൂപ്പനാണ് കരട് ബിൽ അവതരിപ്പിച്ചത് പ്രവാസി ക്ഷേമ പദ്ധതികളുടെ വരുമാന പരിധി ഉയർത്തണ മെന്നും തെക്കു കിഴക്കൻ ഏഷ്യയിലെ വ്യവസായ തൊഴിൽ സാധൃതകൾ പ്രയോജനപ്പെടുത്തണമെന്നും രണ്ടാം ദിവസത്തെ സമ്മേളനത്തിൽ ആവശ്യമുയർന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വിമാന സർവ്വീസ് ആരംഭിക്കണമെന്നും കേരളസഭയിൽ പ്രതി നിധികൾ ആവശ്യപ്പെട്ടു സമ്മേളനം ഇന്ന് സമാപിക്കും

സൈബർ കുറ്റ കൃതൃങ്ങൾ തടയുന്ന പൊലീസ് സൈബർഡോം കോഴിക്കോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും സൈബർപാർക്കിലാണ് ഡോം പ്രവർത്തിക്കുന്നത് ആൾക്കൂട്ടത്തിൽ നിന്ന് ഡ്രോൺ കൃാമറ ഉപയോഗിച്ച് കുറ്റവാളികളെ തിരിച്ചറിയാൻ കഴി യുന്ന സാങ്കേതിക വിദ്യ സൈബർഡോം വികസിപ്പിച്ചി ട്ടുണ്ട് ശബരിമലയിൽ അടുത്ത് ദിവസം ക്യാമറയുടെ പ്രവർത്തനം പരീക്ഷിക്കും

മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന റാലി ഉദ്ഘാടനം ചെയ്യും രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കണമെന്ന് സമ്മേളനം ആവശൃപ്പെട്ടു

ജി സർവകലാ ശാല സന്ദർശിക്കും വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തുടങ്ങിയവരുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തും പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സർവകലാശാലയിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ കാലതാമസം വരുത്തരുതെന്ന് വൈസ് ചാൻസിലർമാർക്ക് നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി കെ

സമയബന്ധിതമായിത്തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്താൻ സ്ഥിരം സംവിധാനം യൂണിവേഴ്സിറ്റികളിൽ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി ഒന്നുമുതൽ എല്ലാ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്ക്റ്റുകളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംവിധാനം നിലവിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു പ്രവാസികൾ വിവിധ രാജൃങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് ശക്തമായി ഇടപെടുമെന്ന് മന്ത്രി ടി

സ്ഥാപിതമായിരിക്കുന്നത് ഇതിനാണെന്നും ഇക്കാര്യത്തിൽ ഗവൺമെന്റ് പ്രതിഞ്ജാബദ്ധമാണെന്നും അദ്ദേഹം വൃക്തമാക്കി

മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാൻ നിശ്ചയിച്ച ക്രമം മാറ്റുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഇന്ന് സാങ്കേ തിക സമിതി യോഗം ചേരും തിരുവനന്തപുരത്ത് മന്ത്രി എ

ഇതേതു ടർന്ന് ഫ്ളാറ്റിന്റെ സമീപവാസികൾ നടത്തിവന്ന ഉപ വാസ സമരം അവസാനിപ്പിച്ചു തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ മെഡിക്കൽ ഇൻസ്റ്റി റ്റ്യൂട്ടിലെ ഉയർന്ന പരാതിയിൽ കേന്ദ്ര ഗവൺമെന്റ് അന്വേ ഷണത്തിന് ഉത്തരവിട്ടു മുൻ പ്രിജിലൻസ് കമ്മീഷണർ ജേക്കബ് തോമസ് ഉൾപ്പെടെ മൂന്നംഗ സംഘമാണ് പരാതി അന്വേഷിക്കുന്നത് മുൻ ഡി ജി പി ടി പി സെൻകു മാർ നൽകിയ പരാതിയിലാണ് അന്വേഷണം

ഡി എഫ് നേതൃ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ തുടർ സമരപരിപാ ടികൾ യോഗം ചർച്ച ചെയ്യും കൊച്ചി തിരുവനന്തപു രം കോഴിക്കോട് മേഖലാ റാലികളുടെ ഒരുക്കങ്ങളും യോഗം വിലയിരുത്തും

ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് വാസുവിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ പാർട്ടി കൌൺസിൽ യോഗം തീരുമാനിച്ചു സുഭാഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചതായി പാർട്ടി ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി ആലപ്പുഴ യിൽ പറഞ്ഞു ട്രെയിൻ യാത്രക്കിടയിൽ റെയിൽവേയുടെ സേവനങ്ങൾ ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്ന ഹെൽപ്ലൈൻ പ്രവർത്തനം ആരംഭിച്ചു

ഇതോടെ സേവനങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന മറ്റ് നമ്പ റുകൾ ഇല്ലാതായി ദേശീയ അന്തർ സർവ്വകലാശാല അത്ലറ്റിക് മീറ്റ് കർണ്ണാടക യിലെ മൂഡബിദ്രിയിൽ ആരംഭിച്ചു ആദ്യ ദിവസം കേര ളത്തിലെ സർവ്വകലാശാലകൾക്ക് ഒരു മെഡലും ലഭിച്ചി ല്ല

ജി കാലി ക്കറ്റ് സർവ്വകലാശാല താരങ്ങൾ ഇന്ന് വിവിധയിനങ്ങ ളിൽ ഫൈനലിൽ മത്സരിക്കും ൃ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഇന്ന് ഹൈദരാബാദിനെ നേരിടും രാവിലെ ഹൈദരാബാദിൽ മത്സരം ആരംഭി ക്കും ആദ്യ കളിയിൽ ഡൽഹിയോട് സമനില വഴങ്ങിയ കേരളം പിന്നീട് ബംഗാളിനോടും ഗുജറാത്തിനോടും പരാ ജയപ്പെട്ടു മോഡൽ റസിഡൻഷ്യൽ സ്കൂളുകളുടേയും പ്രീമെട്രിക് ഹോസ്റ്റലുകളുടേയും സംസ്ഥാനതല കലാമേള സർഗോ ത്സവം നാളെ കോഴിക്കോട്ട് തുടങ്ങും

ഇടുക്കി കാൽവരി മൌണ്ട് ടൂറിസം ഫെസ്റ്റിന്റെ ലോഗോ മന്ത്രി കെ കെ ശൈലജ തിരു വനന്തപുരത്ത് പ്രകാശനം ചെയ്തു

കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ അന്വേഷണം ആവശ്യപ്പെ ടുമ്പോൾ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് പണം ചെല വഴിച്ച് അതുതടയാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റിന് അപമാനമാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു വടകരയിൽ ടി പി ചന്ദ്രശേഖരൻ ഭവൻ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉമ്മൻചാ ണ്ടി പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ കെ മുരളീധരൻ എം പി നയിക്കുന്ന ദേശരക്ഷാ ലോങ് മാർച്ച് രാവിലെ നാദാപു രത്ത് നിന്ന് പുനരാരംഭിക്കും വൈകീട്ട് വടകരയിൽ മാർച്ച് സമാപിക്കും കുറ്റ്യാടിയിൽ ഇന്നലെ മുൻ മുഖ്യ മന്ത്രി ഉമ്മൻചാണ്ടിയാണ് മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്ത ത്

വരും ദിവസങ്ങളിൽ വരുമാനം റെക്കോർഡ് സൃഷ്ടിക്കു മെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ തിരക്ക് കണക്കിലെടുത്ത് തിരുവനന്തപുരം കണ്ണൂർ തിരുവ നന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിൽ താൽകാലിക മായി ഒരു എസി ചെയർകാറും രണ്ട് സെക്കൻഡ് ക്ലാസ് സിറ്റിംഗ് കോച്ചും അനുവദിച്ചു

വ്യാഴാഴ്ചകളിൽ വൈകീട്ട് ഏഴിന് പുറപ്പെടുന്ന ട്രെയിൻ വെള്ളിയാഴ്ച രാവിലെ ഏഴരയ്ക്ക് രാമേശ്വരത്തെത്തും വെള്ളിയാഴ്ചകളിൽ രാവിലെ ഏഴരയ്ക്ക് രാമേശ്വരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ശനിയാഴ്ച രാവിലെ നാലരയ്ക്ക് എറണാകുളത്തെത്തും

മുക്കുടം പാലപ്പറമ്പിൽ ജെറിൽ ബേബി യാണ് ഇന്നലെ വൈകീട്ട് അപകടത്തിൽ മരിച്ചത് ലൂയി ബ്രെയിലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരള ഫെഡ റേഷൻ ഓഫ് ദ ബ്ലൈന്റ് കോഴിക്കോട് ജില്ലാ യൂണിറ്റ് നാളെ ലൂയി ബ്രെയിൽ അനുസ്മരണവും കലാപരിപാ ടികളും സംഘടിപ്പിക്കും കുണ്ടായിത്തോട് ബി വി ടി സി സെന്ററലായിരിക്കും പരിപാടി പുഴങ്കാവിൽ കടലുണ്ടി പുഴയിലെ റെഗുലേറ്റർ നിർമ്മാണം തുടങ്ങി